പുറത്തിറക്കി

കേരളത്തിൽ കോവിഡ് വ്യാപനത്തിൽ തുടർച്ചയായ കുതിപ്പ്

നേതാവ് മമതാ ബാനർജി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

മാഡ്രിഡ് ഓപ്പൺ ടെന്നീസിൽ ലോക മൂന്നാം നമ്പർ താരം സിമോണ ഹാലെപ്പിന് തോൽവി

കെ വെർചൽ ഉച്ചകോടിയുടെ ഭാഗമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള വിഷയങ്ങൾ ഉഭയകക്ഷി ബന്ധം പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവ ചർച്ചയായി

ഇരു രാജ്യത്തെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യാപാരം സാമ്പത്തിക രംഗം പ്രതിരോധം സുരക്ഷ കാലാവസ്ഥ ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനം ശക്തിപ്പെടുത്താനുദ്ദേശിച്ചുള്ളതാണ് കർമ്മപദ്ധതി

ലാബുകളിൽ പരിശോധനാ സാമ്പിളുകളുട്ട് എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിന്റെയും ക്ട്രീപ്പനക്കാർ കൂടുതലായി രോഗബാധിതരാകുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് ഐ സി എം ആറിന്റെ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ

ടി പി

ആന്റിജൻ പരിശോധന വഴിയോ ആർ

സി ആർ വഴിയോ ഒരാൾക്ക് ഒരു തവണ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പരിശോധന നടത്തേണ്ടതില്ല എന്നാൽ ആന്റിജൻ നെഗറ്റീവായതും ലക്ഷണങ്ങളുള്ളതുമായ വൃക്തികൾക്ക് ആർ

സംസ്ഥാനാന്തര യാത്രക്കാരുടെ ആർ

സി

രോഗികൾ ആശുപത്രി വിടുന്ന അവസരത്തിൽ വീണ്ടും പരിശോധന നടത്തില്ല സംസ്ഥാനങ്ങൾ മൊബൈൽ ആർ

സി ആർ പരിശോധനാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട് കൂടാതെ ഓഫീസുകൾ സ്കൂളുകൾ കോളേജുകൾ കമ്മ്യൂണിറ്റി സെന്ററുകൾ തുടങ്ങി സാധ്യമായിടത്തെല്ലാം റാപ്പിഡ് ആന്റിജൻ പരിശോധനാ ബൂത്തുകൾ സജ്ജീകരിക്കാനും ആർ

ആർ ന്റെ പുതുക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ വൃക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്ലാന്റുകളുടെ നിർമ്മാണ് പ്പ്വർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാ്നുള്ള പ്രധാന ചുമതല ദേശീയപാതാ അതോറിറ്റിക്കാണ്ണെന്ന് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ട്വിറ്ററിലൂടെ അറിയിച്ചു

മൂന്ന് കോടിയിലധികം പേർക്കാണ് രണ്ടാം ഡോസ് വാക്സിൻ നൽകിയത് എന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

വാക്സിൻ സ്വീകരിച്ച ശേഷവും കോവിഡ് അനുബന്ധ പെരുമാറ്റ ശീലങ്ങൾ പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു

കഴിഞ്ഞ ഏത്രാനും ദിവസങ്ങൾക്കകം റെംഡെസിവിറിന്റെ ഉൽപാ്ദന ശേഷി മൂന്നിരട്ടി ആയതായി കേന്ദ്ര സഹമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു

ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കത്ത് നൽകി

ഇത് നാലാം ഘട്ടമാണ് ഛത്തീസ്ഗഡിൽ അടച്ചുപൂട്ടൽ നടപടി ദീർഘിപ്പിക്കുന്നത്

നിയുക്ത എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ നാളെയും മറ്റന്നാളുമായി നടക്കും

ഫലപ്രഖ്യാപനത്തെ തുടർന്ന് പൃശ്ചിമ ബംഗാളിൽ നടന്ന വ്യാപക അക്രമത്തിൽ നിരവധി ബിങ്ജൂപ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ഏത്താനുർ പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു സംഭവത്ത് തുടർന്ന് ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ പി നദ്ദ പശ്ചിമ ബംഗാളിൽ സന്ദർശനം നടത്തുകയാണ്

അക്രമവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വനിതാ കമ്മീഷന്റെ ഒരു സംഘം ഇന്ന് പശ്ചിമ ബംഗാൾ സന്ദർശിക്കും

ഇന്ന് നടക്കുന്ന സിപിഐ എം പോളിറ്റ്ബ്യൂറോ യോഗം മന്ത്രിസഭയ്ക്ക് അന്തിമരൂപം നൽകുമെന്നാണ് പ്രതീക്ഷ ഇന്നലെ ചേർന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം വിഷയം ചർച്ച ചെയ്തിരുന്നു മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായി ഘടക കക്ഷികളും പ്രത്യേകം യോഗം ചേരുന്നുണ്ട്

ഭാരതി കീയർടെൽ റിലയൻസ് ജിയോ ഇൻഫോകോം വോഡഫോൺ ഐഡിയ എം

ആറ് മാസത്തേക്കാണ് പരീക്ഷണ കാലാവധി പ്രിാദ്ദേശിക ഗവേഷണ വികസന പ്രവർത്തനങ്ങളെ നടപടി ് പ്രോത്സാഹിപ്പിക്കുമെന്ന് സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഡയറക്ടർ ഡോക്ടർ എസ്

പത്തനംതിട്ട കുമ്പനാട്ടെ സ്വകാരൃ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം രണ്ടാഴ്ച മുമ്പ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മെത്രാപ്പൊലീത്തായെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു ആന്റിജൻ പരിശോധനയിൽ കോവിഡ് മുക്തനായെങ്കിലും മറ്റ് ആരോഗൃ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടർന്ന അദ്ദേഹത്തെ ഇന്നലെയാണ് വിശ്രമ ജീവിതം നയിക്കുന്ന കുമ്പനാട്ടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്

ബൽജിയൻ താരം എലിസ് മാർട്ടെൻസിനോട് ഹാലെപ്പ് രണ്ട് സെറ്റുകൾക്കാണ് പരാജയപ്പെട്ടത്